ബജറ്റിൽ പ്രഖ്യാപിച്ചു ചില മേഖലകളിൽ ഉൾപ്പെടെ ചെലവ് ചുരുക്കുകയും ആരോഗൃ മേഖലയ്ക്ക് കൂടുതൽ തുക നീക്കിവെക്കുകയും വേണ്ടിവരും

ഹിന്ദി പ്രക്ഷേപണത്തിന്റ് ശേഷം കേരള നിലയങ്ങളിൽ മലയാള പരിഭാഷ്ട്യും ക്കേൾക്കാം